പ്പുഴയിൽ നടത്തും

കാർഷിക ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാൻമന്ത്രിഫസൽ ബീമ യോജനയിൽ നഷ്ടപരിഹാരം വൈകിച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്കും സംസ്ഥാനത്തിനും പിഴ ചുമത്തുന്ന തരത്തിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടു ത്തി

അടുത്തമാസം ഒന്നു മുതൽ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നിലവിൽ വരുമെന്ന് കൃഷിമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

പ്രളയത്തിൽ സംസ്ഥാനത്ത് നാൽപതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കരുതുന്നതായി മന്ത്രി ജി സുധാകരൻ ചേർത്തലയിൽ പറഞ്ഞു

ചെലവ് എത്രയായാലും നഷ്ടപ്പെട്ടതെല്ലാം പുനർനിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ആരിൽ നിന്നും നിർബന്ധിച്ച് ദുരിതാശാസ നിധിയിലേക്ക് ഫണ്ട് വാങ്ങുന്നില്ലെന്ന് മന്ത്രി ഇ

നൂഹ് അറിയിച്ചു

ജില്ലയിലെ റോഡുകൾ ഗതാഗതയോഗ്യമാക്കണ മെങ്കിൽ തന്നെ വളരെ വലിയ തുക വേണമെന്നും അദ്ദേഹം പറഞ്ഞു

ആരോഗ്യരംഗത്ത് എല്ലാ വിഭാഗ ങ്ങൾക്കും ഉണ്ടായ നഷ്ടം സംഘം വിലയിരുത്തി ജില്ലാകലക്ടർ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരുമായി സംഘം ചർച്ച നടത്തി

ചെന്നിത്തല പൂതന്നൂർ വിയ്യപുരം മേഖലയിലും രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് പമ്പാനദിയിൽ നിന്നുണ്ടായ അണുബാധയാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു

തൃപ്പൂണിത്തുറയിൽ അന്വേഷണ സംഘത്തിനു മുമ്പിൽ ഹാജരാകാനാണ് ബിഷപ്പിന് ലഭിച്ച നിർദ്ദേശം ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ബിഷപ്പ് ഇന്നലെ തൃശൂരിൽ എത്തി യിട്ടുണ്ട് തൃപ്പൂണിത്തുറ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഹൈടെക് കേന്ദ്ര ത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ എന്നാണ് സൂചന അന്വേഷണ മേൽനോട്ട് ഉദ്യോഗസ്ഥനായ ഐ ജി വിജയ് സാക്കറെയുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോട്ടയം ജില്ലാ പൊലീസ് മേധാവി ഹരിശങ്കർ ചർച്ച ചെയ്തു

കാലതാമസമില്ലാതെ നീതി ലഭ്യമാക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ലൈംഗിക അതിക്രമത്തിനിരയായ വൃക്തി യുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്ര കാരം കുറ്റകരമാണെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യാ ഘടകത്തിന്റെ പ്രോഗ്രാം ഡയറക്ടർ അസ്മിത ബസു വ്യക്തമാക്കി

പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹോദരിയടക്കം മൂന്നുപേർ നിരാഹാരസമരം തുടരുകയാണ്

സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ ഏഴു മുതൽ ഒമ്പതു വരെ ആലപ്പുഴയിൽ നടത്താൻ തീരുമാനിച്ചു

ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മാസമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത്

ജില്ലകളിൽ നിന്ന് ഓരോ ഇനത്തിലും രണ്ടിലധികം പേർക്ക് പങ്കെടുക്കാനാവില്ല കഴിഞ്ഞ വർഷം വരെ മൂന്നു വീതം വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു ഇത്തവണ ഗെയിംസ് ഇനങ്ങളിൽ സംസ്ഥാന മത്സരമില്ല ഇവ സോണൽ മത്സരങ്ങളിൽ അവസാനിക്കും

ഒന്നാം വിള നെല്ല് സംഭരണം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്തു യോഗം ചേരും പാലക്കാട് ജില്ലയിൽ മറ്റന്നാൾ മുതൽ നെല്ല് സംഭരണം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് യോഗം

ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യാ പാക് പോരാട്ടം ഇന്ന് ദുബാ യിൽ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചിനാണ് മത്സരം

ശിഖർ ധവാൻ ഇന്ത്യക്കായി സെഞ്ചറി നേടി

പിരപ്പൻകോട് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്താ രാഷ്ട്ര നീന്തൽകുളത്തിലെ ചാമ്പ്യൻഷിപ്പിൽ എണ്ണൂറോളം താരങ്ങൾ പങ്കെ ടുക്കും

ചൈന ഓപ്പൺ വേൾഡ് ബാഡ്മിന്റൺ ടൂർ ചാമ്പ്യൻഷിപ്പിൽ പി

സിന്ധു കാർട്ടറിലെത്തി ജപ്പാന്റെ സയ്ന കവാകമിയെ സിന്ധു തോൽപിച്ചു അതേസമയം ഇന്ത്യൻ താരം സ്നൈനി നെഹ്പ്പാൾ കൊറി യൻ താരത്തോട് തോറ്റ് ടൂർണ്ണമെന്റിൽ നിന്നും പുറത്തായി

കാഴ്ച പരിമിതരുടെ ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണ്ണമെന്റിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും പനമ്പിള്ളി നഗറിലെ ജോഗോ അറീനയിൽ ഇന്ത്യ ആസ്ട്രേലിയൻ ബ്ലൈൻഡ് ടീമിനെ സൌഹൃദ മത്സരത്തിൽ നേരിടും ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിക്കുന്നത്

പാലക്കാട് സമാപിച്ച കാലിക്കറ്റ് സർവകലാശാല ക്രോസ്സ് കൺട്രി ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗ ത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജുംവനിതാപ വിഭാഗത്തിൽ പാലക്കാട് മേഴ്സി കോളേജും ജേതാക്കളായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് പുരുഷവിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും ക്രൈസ്റ്റ് കോളേജ് വനിതാ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി

ലൈഫ് പദ്ധതിയിൽ പഞ്ചായത്ത് വിഹിതം കൊണ്ട് മാത്രം വീട്പണി പൂർത്തിയാകാത്ത ഇടങ്ങളിൽ ബാങ്ക് വായ്പ ലഭ്യമാക്കി നിർമാണം ത്വരിതപ്പെടുത്തുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു

കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്ന തായി എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തെളിവുകൾ ഇല്ലെന്ന കാരണം പറഞ്ഞാണ് കേസ് എഴുതിത്തള്ള ണമെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഇങ്ങനെ കേസ് എഴുതി തള്ളരുതെന്നും അന്വേഷണം തുടരണമെന്നും ആവശ്യപ്പെട്ടാണ് എൽഡിഎഫിനു വേണ്ടി കൺവീനർ എന്ന നിലയിൽ ഹർജി നൽകിയത് ഈ ഹർജിയെ സാധൂകരിക്കുന്നതാണ് വിധിയെന്നും വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു

ന്നിന് അവസാനവട്ട പരിശോധന ഇന്നും തുടരും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തി ലാണ് പരിശോധന ലൈസൻസ് ലഭിക്കുന്നതിന് മുന്നോടിയായി യാത്രാ വിമാനം റൺവേയിലിറക്കിയും പരിശോധന നടത്തും

നീക്കം ചെയ്യാൻ കാർഗോ പോർട്ടിന്റെ നിർമ്മാണ കമ്പനിയായ മലബാർ പോർട്ട്സിനെ ചുമതലപ്പെടുത്തി

ഒരു കിലോ മീറ്ററിൽ രൂപപ്പെട്ട മണൽതിട്ട കാണാനും അതിലൂടെ നടക്കാനും ആയിരക്കണക്കിനാളുകൾ എത്തിയിരു ന്നു മണൽത്തിട്ട അസ്ഥിര പ്രതിഭാസമായതിനാൽ ഏത് സമയവും പഴയ നിലയിലായേക്കാം എന്ന അപകടസാധ്യത കണക്കിലെടുത്ത് ജില്ലാ കല ക്ടർ പ്രവേശനാനുമതി നിഷേധിച്ചിരുന്നു

കണ്ണൂർ പരിയാരത്ത് മയക്കുമരുന്ന് വില്പനയ്ക്കിടെ നാല് യുവാ ക്കളെ പൊലീസ് അറസ്റ്റ് ചെയ്തു വിൽപ്പനക്കാരായ പരിയാരത്തെ നവാ സ് വാങ്ങാനെത്തിയ മൂന്നുപേർ എന്നിവരാണ് പിടിയിലായത്

കേസിൽ പ്രതിയെ പൊലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കാവിലും പാറ പഞ്ചായത്തിലെ മരുതോറ കലങ്ങോട്ടുമ്മൽ വിശ്വനാഥനാണ് പിടിയി ലായത്